സംഗമം ഇന്ന് രാത്രി ഹൂസ്റ്റണിൽ നടക്കൂം

ഒരുക്കങ്ങൾ പൂർത്തിയായി ജപ്പാൻ കുടിവെള്ള പദ്ധിതികളുടെ പുരോഗതി ന് വിലയിരുത്താനായി ജപ്പാനിൽ നിന്നുള്ള സംഘം നാളെ കേരളത്തിലെത്തും

മികവിന്റെ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം സായി യെ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര കായിക മന്ത്രാലയം

വൈകിട്ട് ഏഴിന് ബംഗളൂരുവിൽ നടക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെക്സസിലെ ഇന്ത്യൻ വംശജരുമായി സംവദിക്കുന്ന ഹൌഡി മോദി സംഗമം ഇന്ന്

ഊർജ്ജ രംഗത്തെ കമ്പനികളുടെ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു

തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ സിക്ക് വംശജർ ദാവൂദി ബോറ സമുദായം കശ്മീരി പണ്ഡിറ്റ് വിഭാഗം തുടങ്ങിയവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നാളെ യു എൻ

ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന് സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

സ്വഛ് ഭാരത് അഭിയാൻ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച പ്രപ്ത്യേക പുരസ്കാരവും ശ്രീ മോദി ഏറ്റു വാങ്ങും

എൻ പൊതുസ്ഭയിൽ സംസാരിക്കും

വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ പി കെ സുധീർ ബാബു അറിയിച്ചു

പാലാ കാർമൽ സ്കൂളിൽനിന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ഉച്ചയോടെ വനിതാ സംഘം പോളിംഗ് ബൂത്തിലെത്തി വൈകുന്നേരത്തോടെ ബൂത്ത് സജ്ജീകരണവും പൂർത്തിയായിട്ടുണ്ട് ഉപതിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർപട്ടിക്കയിൽ നാളെവരെ പേര് ചേർക്കാം

വട്ടിയൂർക്കാവ് കോന്നി എറണാകുളം അ്രൂർ മഞ്ചേശ്വരം മണ്ഡലങ്ങളിലാണ് ഉപതെരെഞ്ഞെടുപ്പ് നടക്കുന്നത്

അടുത്ത മാസം ഏഴുവരെ പത്രിക പിൻവലിക്കാം

സർവ്വകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണിതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വിദ്യാർത്ഥിയെ ചട്ട വിരുദ്ധമായി ജയിപ്പിക്കാൻ സർവ്വകലാശാലയിലെ പരീക്ഷാ സംവിധാനം അട്ടിമറിച്ചതായും സംഭവത്തിൽ ചാൻസലറായ ഗവർണ്ണർ ഇടപെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ്ട് ശ്രീ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് വയനാട് ് ദേശിയ പാതയുടെ ഇരുവശത്തുമുള്ള പ്താസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു സ്ഥാപനത്തിലെ നൂറോളം ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ചേർന്നാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്

ചൊവ്വാഴ്ച തിരുവനന്തപുരം അരുവിക്കരയിലും സന്ദർശനം നടത്തും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു

എലത്തൂരിൽ ഓട്ടോ സ്റ്റാന്റ് സംബ്രിസ്ട്രിച്ച തർക്കത്തിൽ മർദനമേറ്റിരുന്നു തുടർന്ന് പ്പൊള്ളലേറ്റ നിലയിൽ മെഡിക്കൽ കോളെജ് ആശുപത്രിയിൽ പ്ര്യവ്വേശിപ്പിക്കപ്പെട്ട രാജേഷ് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് സുർട്ടവ്ത്തിൽ രണ്ട് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു അത്തേസമയം അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് ബി ജെ പി പ്രവർത്തകർ എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് മൃതദേഹവുമായി പ്രതിഷേധിച്ചു

കോഴിക്കോട് പണിക്കർ റോഡ് സ്വദേശി ലാലുവിന്റെ മകൻ അവിനാശാണ് മരിച്ചത്

വേനലിൽ വൻതോതിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങിയതിനു പിന്നാലെ തുടർച്ചയായുണ്ടായ മഴ ചെടികളുടെ അഴുകൽ രോഗത്തിനും കാരണമായി

മികവിന്റെ കേന്ദ്രങ്ങളിലൂടെ ലഭിക്കുന്ന ഗുണ നിലവാരമുള്ള പരിശീലന്റ് മികച്ച കായികതാരങ്ങളെ സൃഷ്ടിക്കുന്ന തിന് ഉപകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ട്വിറ്ററിൽ പറഞ്ഞു

ആദ്യകളി മഴയെത്തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു